വഴികാട്ടുമെന്ന് ദേശീയ യുവ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഐഎസ്എല്ലിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബെംഗളൂരു എഫ്സി പോരാട്ടം

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് പാർലമെന്റ് വിജയികൾക്കുള്ള സമ്മാദ ദാനവും നടന്നു

സ്വാമി വിവേകാനന്ദൻ സമൂഹത്തിനും ്രാഷ്ട്രത്തിനുമായി നൽകിയ അമൂല്യ സംഭാവനകൾ കാലാതിന്മായി നമുക്കേവർക്കും എന്നും വഴികാട്ടികളായി നിലകൊള്ളുന്നു സ്വാമിയുടെ ഉപദേശങ്ങൾ സ്വന്ത ജീവിതത്തിൽ അനുഭവത്തിൽ വരാത്തവരായി ആരും തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ലെന്നു്ം പ്രധാനമന്ത്രി പറഞ്ഞു

യുവജനോൽസവവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് യുവഡനകാര്യ മന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക നയ രൂപീകരണത്തിൽ സംഭാവന ചെയ്യുക എന്നതാണ് ദേശീയ യുവ പാർലമന്റിന്റെ പ്രമേയം

വൈജ്ഞാനിക സാംസ്കാരിക തത്വശാസ്ത്രമണ്ഡലങ്ങളിലെ ഇന്ത്യയുടെ പ്രഭാവം ലോകത്തെ അറിയിച്ച പ്രതിഭയായിരുന്ന അദ്ദേഹമെന്ന ശ്രീ അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു പുരോഗമനപരവും പ്രചോദിതവുമായ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടാൽ രാജൃത്തിന് ലോകത്തിന്റെ നെറുകയിലെത്താനാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു

വൻസുരക്ഷാ സന്നാഹത്തോടെയാണ് പൂനെ വിമുപ്പുത്താവളത്തിലേക്ക് ആറ് കണ്ടെയ്നർ വാക്സിനുകൾ എത്തിച്ചത്

കഴിഞ്ഞദിവസം മുഖ്യമന്ത്രിമാരുമായി നടത്തി സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാകും വാക്സിൻ നല്കുക

തീരദേശ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുക ് നാവിക സേനയുടെ ശക്തി പൂർണ്ണമായും പ്രദർശിപ്പിക്കുക എന്നിവയാണ് സീ വിജിലിലൂടെ ലക്ഷ്യമിടുന്നത്

അപടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരിച്ചിരുന്നു

ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു

സർക്കാർ പി എസ്

പ്രതിപക്ഷത്തെ ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

താൻ കോഴ വാങ്ങിയിട്ടില്ല സർക്കാർ പ്രതിപക്ഷത്തെ ബോധപൂർവം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

ഐ ആർ മറ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി അന്വേഷണം സി

ഇതു സംബന്ധിച്ച യൂണിടാക് കമ്പനിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി

പക്ഷിപ്പനി നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ സംബന്ധിച്ച കർമ്മപദ്ധതി മൃഗസംരക്ഷണ ക്ഷീര സംരക്ഷണ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷിപ്പനി ബാധിത സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കുറയ്ക്കുന്നതിനായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ശ്രീ അനിൽ ബൈജാൽ ട്വിറ്ററിലൂടെ അറിയിച്ചു

എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളുരു എഫ്

ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്

കൊൽക്കത്ത എ